യുടെയും ആത്മാഭിമാനത്തിന്റെയും പ്രതീകമെന്ന് പ്രധാനമന്ത്രി കൃഷി ആധുനികവൽക്കരിക്കുമെന്നും നരേന്ദ്രമോദി

പാർലമെന്റിൽ അവതരിപ്പിക്കും

വാഹന പരിശോധന കർശനമാക്കും

ചെന്നൈയിനെതിരെ ഹൈദരാബാദിന് രണ്ടു ഗോൾ ജയം

പ്രതിമാസ മൻ കി ബാത്ത് റേഡിയോ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി മൈത്രി

രാജി വോയിസ് കോവിഡ് വാക്സിൻ നിർമിക്കുന്ന കാരൃത്തിൽ ഇന്തൃ ലോകത്തിനു മാതൃകയായിരിക്കയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ഭാരതത്തിന്റെ സ്വയംപര്യാപ്തതയുടെ തെളിവാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

അത്രത്തോളം ലോകത്ത് അത് പ്രയോജനപ്പെടുകയും ചെയ്യുമെന്ന് ശ്രീ

കാർഷിക മേഖലയിലും രാജ്യം വലിയ മുന്നേറ്റമാണ് നടത്തിയത് കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഇതിനായി ഒട്ടേറെ നടപടികളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു

തുടക്കത്തിലെ ബുദ്ധിമുട്ടുകൾക്ക് ശേഷം തിളക്കമാർന്ന തിരിച്ചു വരവ് നടത്തി ആസ്ട്രേലിയയിൽ പരമ്പര നേടി

ഇദ്ദേഹത്തിൽ നിന്ന് പ്രച്ചേദ്ദ്രനം ഉൾക്കൊണ്ട് ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഓരോ പ്രവൃക്തിയും സാധ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രധാനമന്ത്രി് അഭിപ്രായപ്പെട്ടു

ഒരു റിപ്പോർട്ട് വോയ്സ് ഓരോ വെല്ലുവിളിയിലും കരുത്താർജ്ജിച്ച് സാംസ്കാരിക അവബോധമുള്ള രാജ്യമായാണ് ഇന്ത്യയെ സ്വാമി വിവേകാനന്ദൻ കണ്ടിരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സാധാരണക്കാരുടെ ശാക്തീകരണത്തിനായി സ്വാമി വിവേകാനന്ദൻ സ്വീകരിച്ച സമീപനമനുസരിച്ചാണ് രാജ്യം ഇപ്പോൾ മുന്നോട്ടുപോകുന്നത് സാധാരണക്കാർക്ക് ബാങ്കുകളെ സമീപിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബാങ്കുകൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്തണം

ആരോഗ്യരംഗത്തും ഇൻഷുറൻസ് മേഖലയിലും ഇതേ രീതിയാണ് സർക്കാർ ആവിഷിക്കരിച്ചത്

പ്രതിസന്ധികളിൽ നിസ്സഹായത അനുഭവപ്പെടരുത് എന്ന സ്വാമി വിവേകാനന്ദന്റെ സമീപനമാണ് കോവിഡ് മഹാമാരിക്കെതിരെ രാജ്യം കൈക്കൊണ്ടത് കാലാവസ്ഥാ വൃതിയാനം സൃഷ്ടിച്ച പ്രശ്നങ്ങളിൽ പരാതികൾ ഉന്നയിക്കുന്നതിനുപകരം അന്താരാഷ്ട്ര സോളാർ സഖ്യത്തിലൂടെ ഇന്ത്യ അതിനു പരിഹാരം കണ്ടെത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു രാഷ്ട്രത്തിന്റെ ആത്മചൈതന്യം വ്യക്തമാക്കാനാണ് പ്രസിദ്ധീകരണത്തിന് പ്രബൂദ്ധ ഭാരത എന്ന് പേരിട്ടതെന്ന് ശ്രീ നരേന്ദ്രമോദ്ദു പറഞ്ഞു

രാജ്യസഭയുടെ സുഗമമായ നടത്തിപ്പിന് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ആവശൃപ്പെട്ടായിരുന്നു അദ്ദേഹം യോഗം വിളിച്ചത് സഭയിൽ പൂർണ്ണ പങ്കാളിത്തമുണ്ടാകുമെന്നും എല്ലാ സംവാദങ്ങളിലും ചർച്ചകളിലും പങ്കെടുക്കുമെന്നും നേതാക്കൾ ഉറപ്പ് നൽകിയതായി ഉപരാഷ്ട്രപതി പറഞ്ഞു

നാല് ഓർഡിനൻസുകൾക്ക് പകരമുള്ള ബില്ലുകൾ ഇത്തവണ സഭ പരിഗണിക്കുമെന്ന് പാർലമെന്ററികാരൃ മന്ത്രി പ്രഹ്ളാദ് ജോഷി അറിയിച്ചു

പ്രവേശനം ഓൺലൈൻ ടിക്കറ്റുകളിലൂടെ ഉറപ്പാക്കാൻ തിയേറ്റർ ഉടമകൾ മുൻകൈ എടുക്കണമെന്നും ശ്രീ

ജെ

അധികാരത്തിൽ വരികയാണെ ങ്കിൽ ആദ്യ മന്ത്രിസഭാ യോഗ്ഗത്തിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി തുടങ്ങാനുള്ള തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര മന്ത്രി അമിത്ഷാ

ജെ

പശ്ചിമബംഗാളിൽ ഗവൺമെന്റ് രൂപീകരിക്കാനാകുമെന്നും സംസ്ഥാനത്തെ വികസനത്തിലേയ്ക്ക് നയിക്കാനാകുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു

ഇന്ത്യൻ വംശജരായ ഡോക്ടർമാരുടെ ബ്രിട്ടീഷ് അസ്സോസിയേഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ വാക്സിൻ ഉല്പാദകരാണ് ഇന്തൃ ആരോഗൃ പ്രവർത്തകർക്ക് വാക്സിൻ നൽകുന്നതിനൊപ്പം ആഗോളതലത്തിൽ കയറ്റുമതി നടത്തുന്നുമുണ്ട് മറ്റ് രാജ്യങ്ങളെക്കാൾ വിദഗ്ദ്ധമായി കോവിഡ് മഹാമാരിയെ നേരിടാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞുവെന്ന് ഡോ

എൽ ഫുട്ബോളിലെ ആദ്യ മത്സരത്തിൽ ചെന്നൈയിനെതിരെ ഹൈദരാബാദിന് രണ്ടു ഗോൾ ജയം

രണ്ടാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എ ടി കെ മോഹൻ ബഗാനെ നേരിടുന്നു

ലക്ഷദ്വീപിലും കോവിഡ് മാക്രദ്യ്യങ്ങൾ പാലിച്ച് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണീം നടന്നു

രാജ്യത്തെ സ്ത്രീകൾ കൃഷി കായികരംഗം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയിൽ ദേശീയ വനിതാ കമ്മീഷന്റെ സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കോവിഡ് പ്രതിരോധ രംഗത്ത് വനിതാ പോരാളികളെ രംഗത്തിറക്കാൻ വനിതാ കമ്മീഷൻ നടത്തിയ ശ്രമങ്ങളെ ശ്രീ ജാവ്ദേക്കർ ശ്ലാഘിച്ചു